നാമനിർദ്ദേശപത്രിക സമർപ്പണവും ഇന്ന് തുടങ്ങും സ്ഥാനാർഥികൾ ക്രിമിനൽ കേസുകൾ സംബന്ധിച്ച വിവരങ്ങൾ നിർബന്ധമായും പരസ്യപ്പെടുത്തണമെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ ഉപഗ്രഹവേധ മിസൈൽ പരീക്ഷണത്തിന്റെ വിജയം സംബന്ധിച്ച പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം പെരുമാറ്റച്ചട്ട ലംഘനമാണോയെന്ന് പരിശോധിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മിഷൻ കമ്മിറ്റി രൂപീകരിച്ചു പാർട്ടി ആവശ്യപ്പെട്ടാൽ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് പ്രിയങ്ക ഗാന്ധി കനത്ത പകൽച്ചൂടിൽ സംസ്ഥാനത്ത് ഇന്നലെ നൂറിലേറെപ്പേർക്ക് സൂര്യാതപമേറ്റു അസ്ലൻഷാ ഹോക്കി ടൂർണമെന്റിൽ ഇന്ത്യ ആദ്യ ഫൈനലിസ്റ്റു കൾ

വിജ്ഞാപനം പുറപ്പെടുവിക്കുന്ന ഇന്നുമുതൽ നാമനിർദ്ദേശപ ത്രിക സമർപ്പണത്തിനും തുടക്കമാവും

ഏപ്രിൽ നാലാണ് പത്രികാ സമർപ്പ ണത്തിന്റെ അവസാനദിവസം സൂക്ഷ്മ പരിശോധന ഏപ്രിൽ അഞ്ചിന് നടക്കും എട്ടാംതീയ്യതി വരെ പത്രിക പിൻവലിക്കാം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർഥികൾ ക്രിമിനൽ കേസുകൾ സംബന്ധിച്ച വിവരങ്ങൾ പരസ്യപ്പെടുത്താതിരിക്കുന്നത് കോടതിയലക്ഷ്യ ത്തിനും തിരഞ്ഞെടുപ്പ് ഹർജികൾക്കും പരിഗണിക്കാവുന്ന കാരണമാ കുമെന്ന് സംസ്ഥാന മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ അറിയിച്ചു മൂന്ന് പ്രമുഖ പത്രങ്ങളിലും മൂന്ന് പ്രധാന ചാനലുകളിലും മൂന്ന് തവണവീതം ഇക്കാര്യങ്ങൾ പരസ്യപ്പെടുത്തണമെന്നാണ് വ്യവസ്ഥ നാമനിർദ്ദേശപത്രിക പിൻവലിക്കാവുന്ന അവസാന തീയ്യതിയുടെ പിറ്റേ ന്നുമുതൽ വോട്ടെടുപ്പിന് രണ്ട് ദിവസം മുമ്പുവരെ ഇതിന് സമയം നൽകി യിട്ടുണ്ട് രാവിലെ എട്ടിനും രാത്രി പത്തിനുമിടയിൽ ഏഴ് സെക്കൻഡ് വീതമെങ്കിലും ചാനലുകളിൽ പരസ്യം ഉണ്ടാവ്യണം ഇതിന്റെ ചിലവ് തിര ഞ്ഞെടുപ്പ് ചിലവിന്റെ ഭാഗമായി കണക്കാക്കും ഉപഗ്രഹവേധ മിസൈൽ പരീക്ഷണത്തിന്റെ വിജയംസംബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രത്തോട് നടത്തിയ പ്രസംഗം തിരഞ്ഞെ ടുപ്പ് മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണോയെന്ന് പരിശോധി ക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മിഷൻ കമ്മിറ്റി രൂപീകരിച്ചു പെരുമാറ്റച്ചട്ട വിഭാ ഗത്തിലെ ഡെപ്യൂട്ടി കമ്മിഷണർ സന്ദീപ് സക്സേന നേതൃത്വം നൽകുന്ന കമ്മിറ്റി ഇക്കാര്യം വിശദമായി പരിശോധിക്കുമെന്ന് കമ്മിഷൻ വക്താവ് ന്യൂഡൽഹിയിൽ പറഞ്ഞു രാജ്യസുരക്ഷയും ദുരന്തനിവാരണ പ്രവർത്ത നങ്ങളും സംബന്ധിച്ച വിഷയങ്ങൾ പെരുമാറ്റച്ചട്ടത്തിന്റെ പരിധിയിൽ വരില്ലെന്നാണ് സൂചന ഉപഗ്രഹവേധ മിസൈൽ സംവിധാനം ഗവൺമെന്റിന്റെ നേട്ടമായി പ്രധാനമന്ത്രി എടുത്തുകാണിച്ചെന്ന പ്രതി പക്ഷ പാർട്ടികളുടെ പരാതി പ്രകാരമാണ് കമ്മിഷൻ ഇക്കാര്യം പരിശോ ധിക്കുന്നത് എത്രയുംവേഗം പരിശോധനാ റിപ്പോർട്ട് നൽകാൻ സമിതി യോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇന്നലെ ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട മന്ത്രിസഭാ സമിതി യോഗത്തിനുശേഷമാണ് നരേന്ദ്രമോദി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി വയനാട്ടിൽ സ്ഥാനാർഥിയാകുന്നത് സംബന്ധിച്ച ആശയക്കുഴപ്പം തുടരുകയാണ്

അതേസമയം രാഹുൽ വയനാട്ടിൽ സ്ഥാനാർഥിയാകുന്നതിനെ യുപിഎയിലെ ഘടകകക്ഷികളായ എൻസിപിയും ലോക് താന്ത്രിക് ജനതാദളും എതിർത്തതായും റിപ്പോർട്ടുകളുണ്ട് കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഇന്ന് വൈകീട്ട് ചേരുന്നുണ്ട് അതിൽ വയനാട് സീറ്റിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർഥികൾ ഒന്നിലേറെ മണ്ഡലങ്ങളിൽ മത്സ രിക്കുന്നത് തടയണമെന്ന ഹർജി രണ്ടാഴ്ചയ്ക്കുശേഷം പരിഗണിക്കാ മെന്ന് സുപ്രീംകോടതി ഡിവിഷൻബെഞ്ച് അറിയിച്ചു ഹർജി അടിയന്ത രമായി പരിഗണിക്കണമെന്ന അപേക്ഷയിലാണ് സൂപ്രീംകോടതിയുടെ നടപടി തിരഞ്ഞെടുപ്പ് കമ്മിഷൻ നേരത്തെത്തന്നെ ഒരാൾ ഒന്നിലേറെ മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നത് വിലക്കണമെന്ന് ശുപാർശ തയ്യാറാക്കി യിട്ടുണ്ടെന്ന് ഹർജിക്കാരൻ കോടതിയെ അറിയിച്ചു പാർട്ടി ആവശൃപ്പെട്ടാൽ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് പ്രിയങ്കാ ഗാന്ധി വാദ്ര അമേഠിയിൽ പറഞ്ഞു എന്നാൽ പാർട്ടിക്കുവേണ്ടി പ്രചാ രണം നടത്തുകയാണ് സ്വന്തം താൽപ്പര്യമെന്ന് അവർ വ്യക്തമാക്കി രാഹുൽ ഗാന്ധിയ്ക്കുവേണ്ടിയല്ല രാജ്യത്തിന്റെ രക്ഷയ്ക്കുവേണ്ടിയാണ് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പെന്ന് പ്രവർത്തകരെയും വോട്ടർമാരെയും ബോധ്യപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്നും പ്രിയങ്ക പറഞ്ഞു ജനാധിപത്യ ശക്തികളുടെ വോട്ടു കൊണ്ടു മാത്രം യു ഡി എഫിന് വിജയിക്കാനാവുമെന്ന് കെ

സി സി പ്രസിഡന്റ് മുല്ല പ്പള്ളി രാമചന്ദ്രൻ ആലപ്പുഴയിൽ പറഞ്ഞു

എസ് എസിന്റെയും ബി ജെ പിയുടെയും വോട്ട് യു

സംസ്ഥാനത്തെ കൊലപാതക പരമ്പരയും നഷ്ടമായ സ്ത്രീ സുരക്ഷയും ആഭ്യന്തര വകു പ്പിന്റെ പരാജയംകൊണ്ടാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും വർഗീയ ശക്തികളുടെ സഹായം തേടിയതാണ് സി

എമ്മിന്റെ ഇപ്പോഴത്തെ ദുരവ സ്ഥയ്ക്ക് കാരണമെന്നും മുല്ലപ്പള്ളി കുറ്റപ്പെടുത്തി രാഷ്ട്രീയ കൊലപാതകങ്ങളിലാണ് കേരളം ഒന്നാമതെത്തിയതെന്ന് എ ഐ

സി

കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ ജി

ടി പുനപ രിശോധിക്കുമെന്നും ഉമ്മൻചാണ്ടി അറിയിച്ചു കണ്ണൂർ ജില്ലാ ശുചിത്വമിഷനും ഹരിത കേരള മിഷനും ചേർന്ന് തയ്യാറാക്കിയ മാതൃക പോളിംഗ് സ്റ്റേഷൻ ജില്ലാ കലക്ടർ മീർ മുഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു ഹരിത പെരുമാറ്റച്ചട്ടം പാലിക്കാൻ ഓരോ പോളിംഗ് സ്റ്റേഷനുകളിലും ഉണ്ടായിരിക്കേണ്ട സൌകര്യങ്ങളും പാലിക്കേണ്ട നിയമങ്ങളും വിശദീകരിക്കുന്നതാണ് കലക്ടറേറ്റിൽ സജ്ജീകരിച്ചിരിക്കുന്ന മാതൃകാ പോളിംഗ് സ്റ്റേഷൻ പത്തനംതിട്ട തിരുമൂലപുരത്ത് രേഖകളില്ലാതെ കാറിൽ കൊണ്ടുവന്ന പണം തിരഞ്ഞെടുപ്പ് ഫ്ളൈയിങ് സ്കാഡ് പിടികൂടി ഒന്നര ലക്ഷ ത്തോളം രൂപ വാഹനത്തിലുണ്ടായിരുന്നു

നൂഹ് അറിയി ച്ചു പ്രചാരണ സാമഗ്രികൾ നീക്കം ചെയ്യുന്നതിന്റെ ചെലവ് സ്ഥാനാർഥി കളുടെ ചെലവിൽ ഉൾപ്പെടുത്തുമെന്ന് കളക്ടർ അറിയിച്ചു കനത്ത പകൽച്ചൂടിൽ സംസ്ഥാനത്ത് ഇന്നലെ നൂറിലധികം പേർക്ക് സൂര്യാതപമേറ്റു

സൂര്യാഘാതമേറ്റ രണ്ടുപേരും തിരുവനന്തപുരം ജില്ലക്കാരാണ് പത്തനംതിട്ടയിൽ എട്ടുപേർക്കും കോട്ടയത്ത് ഏഴുപേർക്കും കൊല്ലത്തും എറണാകുളത്തും അഞ്ചുപേർക്ക് വീതവും വയനാട് ആലപ്പുഴ തൃശൂർ പാലക്കാട് കോഴിക്കോട് ജില്ലകളിൽ മൂന്നുപേർക്കുവീതവും മലപ്പുറം കണ്ണൂർ കാസർകോട് എന്നിവിടങ്ങളിൽ രണ്ടുപേർക്കുവീതവുമാണ് സൂര്യാതപമേറ്റത്

ഒരാഴ്ചകൂടി ഉയർന്നചൂട് തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ വിലയിരുത്തൽ മലേഷ്യയിലെ ഇപ്പോയിൽ അസ്ലൻ ഷാ ഹോക്കി ടൂർണമെന്റിൽ ഇന്ത്യ ഫൈനലിൽ പ്രവേശിച്ചു മൂന്നിനെതിരേ ഏഴ് ഗോളുകൾക്ക് കാന ഡയെ തകർത്താണ് ഇന്ത്യ ഫൈനലിൽ എത്തിയത് ടൂർണമെന്റിലെ നാല് മത്സരങ്ങൾ പൂർത്തിയാക്കിയ ഇന്ത്യ പത്ത്പോയിന്റുമായി ഒന്നാം സ്ഥാനത്താണ്

ദക്ഷിണകൊറിയ് ഏറെക്കുറെ ഫൈനൽ ഉറപ്പാക്കിയിട്ടുണ്ട്

ഇന്ന് ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സും മുംബൈ ഇന്ത്യൻസും തമ്മിൽ ഏറ്റുമുട്ടും കൊച്ചിയിൽ കേരള പ്രീമിയർ ലീഗിൽ ഗോകുലം കേരള എഫ്

ഗോൾഡൻ ത്രെഡ്സ് എഫ് സിയെ ഒന്നി നെതിരെ മൂന്ന് ഗോളുകൾക്കാണ് ഗോകുലം പരാജയപ്പെടുത്തിയത് ദേശീയ സരസ് മേള ഇന്ന് കുന്നംകുളത്ത് ആരംഭിക്കും അടുത്ത മാസം ഏഴുവരെ ചെറുവത്തൂർ മൈതാനത്താണ് ഗ്രാമീണ കരകൌശല ഉൽപ്പന്നങ്ങളുടെയും വസ്ത്രങ്ങളുടെയും ഗാർഹിക ഉൽപ്പന്നങ്ങളുടെയും പ്രദർശനം രാജസ്ഥാൻ പഞ്ചാബ് ജാർഖണ്ഡ് കർണാടക എന്നീ സംസ്ഥാനങ്ങളിലെ ഭക്ഷ്യ വിഭവങ്ങളും മേളയിൽ ഉണ്ടായിരിക്കും കാസർകോട് കല്ല്യോട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കൊല പ്പെടുത്തിയ കേസിൽ അന്വേഷണ സംഘം ഹാജരാക്കിയ ആയുധങ്ങൾ പോലീസ് സർജൻ കോടതിയിലെത്തി പരിശോധിച്ചു മരിച്ചവരുടെ ദേഹ പരിശോധന നടത്തിയ പരിയാരം മെഡിക്കൽ കോളജിലെ പോലീസ് സർജൻ എസ് ഗോപാലകൃഷ്ണ പിള്ളയാണ് ഹോസ്ദുർഗ് ഒന്നാംക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ എത്തി പരിശോധന നടത്തിയത്

കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്യുകയും വെള്ളത്തിന്റെ സാമ്പിൾ പരിശോധനയ്ക്കായി എടുക്കുകയും ചെയ്യുന്നുണ്ട് ശീതളപാനീയങ്ങൾ ഉപയോഗിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പുനൽകി

ഷാപ്പുകളുടെ ലൈസൻസികൾക്ക് വിശദീകരണമാവശ്യപ്പെട്ട് നോട്ടീസും നൽകും ചേർത്തല കുട്ടനാട് മാവേലിക്കർ ഗ്രൂപ്പുകളിൽ കഴിഞ്ഞ ഒക്ടോബറിൽ എടുത്ത സാമ്പിളുകളിലാണ് കഞ്ചാവിന്റെ അംശം കണ്ടെ ത്തിയത് കേരള വനഗവേഷണ കേന്ദ്രത്തിന്റെ നിലമ്പൂർ ഉപകേന്ദ്രത്തിന്റെ ഔഷധസസ്യത്തോട്ടം സഞ്ചാരികൾക്കായി തുറന്നുകൊടുത്തു ജൈവ വൈവിധ്യ പാർക്കിലാണ് ഔഷധ സസ്യത്തോട്ടം നിർമിച്ചിരിക്കുന്നത്

മുഖ്യ വനം കൺസർവേറ്റർ ഷേയ്ക്ക് ഹൈദർ ഹുസൈൻ സസ്യത്തോട്ടം ഉദ്ഘാ ടനം ചെയ്തു

മഹാരാജാസ് കോളേജിലെ എസ്

നേതാവായിരുന്ന അഭി മന്യുവിനെ കൊലപ്പെടുത്തിയ കേസിലെ ഒൻപതാംപ്രതി ഷിഹാസ് കോട തിയിൽ കീഴടങ്ങി പ്രതിയെ അന്വേഷണസംഘം കസ്റ്റഡിയിൽവാങ്ങി അറസ്റ്റ് രേഖപ്പെടുത്തി